ഒഴിവുകൾ നികത്താൻ കേന്ദ്രം സ്ട്ര്സ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി

പ്രമുഖ ഛായാഗ്രാഹകൻ എം

വിംബിൾഡൺ പുരുഷവിഭാഗം ഫൈനലിൽ നൊവോക് ജോക്കോവിച്ചും റോജർ ഫെഡററും ഏറ്റുമുട്ടും

അമേരിക്കൻ വ്യാപാര പ്രതിനിധി ക്രിസ്റ്റഫർ വിൽസണിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും വാണിജ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി സജ്ഞയ് ചദ്ദയുടെ നേതൃത്വ ത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇന്നലെ ന്യൂഡൽഹിയിൽ നട ത്തിയ ഉഭയ കക്ഷി ചർച്ചയിലാണ് ഇതു സംബന്ധിച്ച ധാരണയിലെ ത്തിയത്

ഡോക്ടർ രോഗി അനുപാതം നിലനിർത്തുന്ന തിനും ഡോക്ടർമാരുടെ അമിത ജോലി ഭാരം കുറയ്ക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ തീരുമാനം ലോക്സഭയിൽ ആരോഗ്യ സഹമന്ത്രി അശ്വിനികുമാർ ചൌബേ രേഖാമൂലം സമർപ്പിച്ച മറുപടി യിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിദൂര ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ ജീവനക്കാർക്കും അധികമായി അലവൻസുകൾ നല്കുമെന്നും മന്ത്രി അറിയിച്ചു ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്ക് സുരക്ഷയൊരുക്കുന്നതിന് അടിയ ന്തിര നടപടിയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നല്കിയിട്ടുണ്ടെന്നും മന്ത്രി ലോക്സഭയെ അറിയിച്ചു

രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ ലക്ഷ്യത്തിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടേറെ നടപടികൾ അവർ എണ്ണി പറഞ്ഞു കാർഷിക സാമൂഹ്യ ആരോഗ്യ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റിനുള്ള പ്രതിജ്ഞാ ബദ്ധത ബജറ്റിൽ കാണാനാകുമെന്ന് അവർ പറഞ്ഞു

വാഗാ അതിർത്തിയിലാണ് ചർച്ച നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ്ട്

സീറോ പോയിന്റിലെ സംയോജനം സംബ്സ്ഡിച്ചും തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചും വിശദമായി ചർച്ച ചെയ്യുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു യാത്രക്കാർക്കുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും അവർ പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

മുട്ട മാംസം മത്സ്യം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റ നിരക്ക് വർദ്ധിച്ചുവെങ്കിലും പച്ചക്കറികളുടെയും പഴങ്ങളുടെയും വിലക്കയറ്റ നിരക്ക് കുറവായിരുന്നു

കേന്ദ്ര റെയിൽമന്ത്രി പിയൂഷ് ഗോയൽ ലോക്സഭയിൽ അറിയിച്ചതാണിക്കാര്യം റെയിൽവേയുടെ ധനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് റെയിൽവെ മുന്തിയ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു

നാല് മന്ത്രിമാരെ മാറ്റുമെന്നും പുതിയ മന്ത്രിമാരുടെ സത്യപ്ര തിജ്ഞ ഇന്ന് വൈകിട്ട് മൂന്നിന് നടക്കുമെന്നും അദ്ദേഹം അറിയി ച്ചു പത്ത് കോൺഗ്രസ്സ് എം എൽ എ മാർ കൂടി ബി ജെ

ഗോവ ഫോർവേഡ് പാർട്ടിയിലെ മൂന്ന്പേരെയും ഒരു സ്വതന്ത്രനെയുമാണ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്നത്

രമേഷ് കുമാറിന് സുപ്രീം കോടതി നിർദേശം നൽകി

പ്രശ്നത്തിൽ അട്ടുത്ത് ചൊവ്വാഴ്ച പരമോന്നത കോടതി വീണ്ടും വാദം ക്കേൾക്കും കോടതി ഉത്തരവിനെ വെല്ലുവിളിക്കാനുള്ള അധ്യികാരം സ്പീക്കർക്കുണ്ടോ എന്ന് കോടതി ചോദിച്ചു ക്ട്ടട്ട്തി ഉത്തരവിനെതിരെ സ്പീക്കർ സമർപ്പിച്ച ഹർജി പരിഗ്രണിക്കുകയായിരുന്നു സുപ്രീം കോടതി

ബി ഐ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തു

അന്നത്തെ ഉപഭോക്തൃകാര്യ മന്ത്രിയായിരുന്ന നബാം തുകിക്കും സഹോദരൻ നബാം തഗമിനും അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് ആരോപണം

എസ് എൽ വി

ആർ ഒ

ശിവൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ശ്രീഹരിക്കോട്ടയിലുണ്ട്

തിരുവനന്തപുരത്ത് അന്തരിച്ചു

ഏഴ് തവണ മികച്ചു ഛായാഗ്രാഹകനുള്ള സംസ്ഥാന പുരസ്ക്കാരവും ഒട്ടേറെ രാജ്യാന്തര പുരസ്ക്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഭൌതിക ശരീരം ഇന്ന് രാവിലെ പത്തരയോടെ കലാഭവൻ തീയേറ്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും

ഒരു റിപ്പോർട്ട്

വനിതാ സിംഗിൽസ് ഫൈനലിൽ ഇന്ന് യു

എങ്കിലും ബോൺ ഗയ്ഗോൺ ജില്ലിയിലെ മിക്ക പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്

മണ്ണിടിച്ചിലിനെ തുട്ന്ന് ട്രെയിൻ ഗതാഗതം നിറുത്തി വച്ചിരിക്കുകയാണ്

കേരളത്തിലെ മുത്തൂറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നിയമ പ്രകാരമുള്ള അവകാശങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തുന്നതിനായിരുന്നു പരിശോധന